എയർപിസ്റ്റൽ ഈവന്റിൽ ഇന്ത്യയുടെ അഭിഷേക് വർമ്മയ്ക്ക് സ്ഥർണം

ഫൈനലിൽ ഇന്ത്യ ഇന്ന് വെസ്റ്റിൻഡീസിനെ നേരിടും

കൂടാതെ ഹരിയാനയിൽ പത്ത് ആയുഷ്ട് ആരോഗ്യ കേന്ദ്രങ്ങൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും ഘ്രുന്ന മൂന്നു വർഷത്തിനുള്ളിൽ രാജ്യത്തൊട്ടാകെ പന്തീരായിർത്തി അഞ്ഞൂറ് ആരോഗ്യകേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ ആയുഷ് മന്ത്രാ്ലയം നേരത്തെ തീരുമാനിച്ചിരുന്നു ഇതിന്റെ ഭാഗമാണ് ഹരിയാനയിലെ പുതിയ ആരോഗൃ കേന്ദ്രങ്ങൾ

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് എഡിബി മേധാവി ഗവൺമെന്റിന്റെ മുൻനിര വികസന പദ്ധതികൾക്ക് പിൻതുണ അറിയിച്ചത്

ഭാവിയിൽ വനവൽക്കരണത്തിനുള്ള ഫണ്ട് സംസ്ഥാനങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും ജാവദേക്കർ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു് വനവൽക്കരണത്തിനായുള്ള കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ ഫണ്ട് ആക്ടിനും നിയമങ്ങൾക്കും വിധേയമായി മാത്രമേ ഇത്തരം ഫണ്ട് വിനിയോഗിക്കാവൂ എന്നും അദ്ദേഹം പറഞ്ഞു

എ ഗവൺമെന്റ് അധികാരമേറ്റശേഷം സമ്പദ്വ്യവസ്ഥ വളരെയ്ക്കുധികം പുരോഗതി പ്രാപിച്ചതായി കേന്ദ്ര ആഭ്യന്ത്രമന്ത്രി ശ്രീ അമിത് ഷാ ഗുജറാത്തിലെ ഗാന്ധി നഗറിൽ പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപ്പിാ്ധ്യായ പെട്രോളിയം യൂണിവേഴ്സിറ്റിയുടെ ഏഴാമത് ബിരുദ്ദ്യന് ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

ബി ജെ പി ഭരണത്തിൽ പണപ്പെരുപ്പം ഒൻപതിൽ നിന്നു്ർ മൂന്ന് ശതമാനമായി കുറഞ്ഞെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വ്യാപ്പ്ക് സൌഹൃദരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ സ്ഥാനം മെച്ചപ്പെടുത്തിയ്തും ശ്രീ

നികുതി നിർബന്ധിച്ച് നടപ്പിലാക്കുന്നതിന് പകരം ലഘുവാക്കുന്നതിനുള്ള നടപടികൾക്ക് പ്രാധാനൃം കൊടുക്കേണ്ടതിന്റെ ആവശ്യകത അവർ എടുത്തു പറഞ്ഞു നികുതിദായകരോട് മാന്യമായി പെരുമാറണമെന്ന് ധനമന്ത്രി അധികാരികളോട് നിർദ്ദേശിച്ചു

ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ദേശീയ പൌരത്വ പട്ടിക പ്രസിദ്ധപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് സുരക്ഷാപ്രശ്നങ്ങൾ ഒന്നും ഇല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പൌരത്വ രജിസ്റ്ററിൽ പേരില്ലാത്തവർക്ക് വിദേശീയർക്കുള്ള ട്രൈബ്യൂണലുകളിൽ പരാതി കൊടുക്കാനുള്ള സൌകര്യം ഉണ്ടാകുമെന്നും ശ്രീ

ആവശ്യമായവർക്ക് നിയമസഹായം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു

അതേസമയം ബാങ്കിതര ധനകാര്യ ക്ലിഫ്പ്പനങ്ങൾ പ്രതിസന്ധിയിലായതായി ഇന്നല്ലെ പുറത്തിറക്കിയ ആർ

ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ വളർച്ചാ മുർടിപ്പ് പരിഹരിക്കാൻ കൂടുതൽ പരിഷ്ക്കാര നടപടികൾ വ്വീണ്ടി വരുമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു

ഡോക്ടർമാർ നിയമജ്ഞർ ചാർട്ടേഡ് അക്കൌണ്ടന്റുകൾ തുടങ്ങിയവർക്ക് സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ളവരെ സഹായിക്കുന്ന തരത്തിലുള്ള മനോഭാവമുണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു

മേക്ക് ഇൻ ഇന്ത്യാ പദ്ധതികൾക്കായി ഒരു പുതിയ സംസ്കാരം ഉണ്ടാക്കുന്നതിന് സംഘടനകൾ ശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു

ഇന്ന് കൊച്ചിയിൽ സ്വകാര്യ ചാനൽ സംഘടിപ്പിക്കുന്ന ന്യൂസ് കോൺക്ലേവിൽ അദ്ദേഹം പങ്കെടുക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ നിന്ന് വീഡിയോ കോൺഫറൻസിംഗ് മുഖേന പരിപാടി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് കേന്ദ്രമന്ത്രി ജാവ്ദേക്കർ ഗവൺമെന്റും മാധ്യമങ്ങളും എന്ന വിഷയത്തിൽ സംസാരിക്കും

ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ വിദേശകാര്യ വക്താവ് രവീഷ് കുമാർ പറഞ്ഞ്താണ് ഇക്കാര്യം മേഖലയിൽ സ്വതന്ത്രമായ സഞ്ചാരത്തിക്കും അന്താരാഷ്ട്ര സമുദ്രനിയമങ്ങൾക്കനുസൃതമായി വ്യാപാരം സാധ്യമാക്കാനും ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്നും ശ്രീ

തർക്കവിഷയങ്ങൾ രമൃമായി പരിഹരിക്കാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞ അദ്ദേഹം പ്രദേശത്ത് ഒരു തർത്തിലുമുള്ള സമ്മർദ്ദങ്ങൾക്കോ സൈനിക നടപടിയ്ക്കോ രാജ്യം താൽപ്പരൂപ്പെടുന്നില്ലെന്നും കൂട്ടിച്ചേർത്തു

എക്സ് മീഡിയ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മുൻ ധനമന്ത്രി പി ചിദംബരത്തിന്റെ വാദത്തിൻമേൽ അടുത്ത മാസം അഞ്ചിന് ഉത്തരവ് പുറപ്പെടുവിക്കുമെന്ന് സുപ്രീംകോടതി കേസിൽ ചിദംബരത്തെ അറസ്റ്റ് ചെയ്യുന്നത് തടഞ്ഞ മുൻ ഉത്തരവ് അടുത്ത വ്യാഴാഴ്ച വരെ നീട്ടിയതായും ജസ്റ്റിസ് ആർ ഭാനുമതി ജസ്റ്റിസ് എ

വരുന്ന തിങ്കളാഴ്ച വരെ സി ബി ഐ കസ്റ്റഡിയിൽ തുടരാൻ അനുവദിക്കണമെന്ന ചിദംബരത്തിന്റെ ആവശ്യം സൊളിസിറ്റർ ജനറൽ തുഷാർ മേത്ത എതിർത്തു റിമാൻഡ് കാലാവധി നീട്ടാൻ സി ബി ഐ കോടതിയ്ക്കാണ് അവകാശമെന്ന് വാദിച്ചു

ഇടപാടുമായി ബന്ധപ്പെട്ട് അക്കാലയളവിൽ ഹരിയാന മുഖ്യമന്ത്രിയായിരുന്ന ഭൂവേന്ദ്രസിങ്ങ് ഹൂഡയുടെ അനുയായികൾ സ്വത്തുക്കൾ അനധികൃതമായി കൈക്കലാക്കുകയായിരുന്നുവെന്ന് ഡയറക്ടറേറ്റ് അറിയിപ്പിൽ പറയുന്നു

ബി

സി മന്ത്രിയായ സുബേദാ മുഖർജി സിറ്റിംഗ് എംപ്പികക്കോലി ഘോഷ് ദസ്തിദർ കൊൽക്കത്ത മുൻ മേയറും ഇപ്പോൾ ബിജെപി നേതാവുമായ സോവൻ ചാറ്റർജി എന്നിവർക്കാണ് ഏക്സ്മുമായി ബന്ധപ്പെട്ട് സി ബി

ബിജെപി വർക്കിംഗ് പ്രസിഡന്റ് ജെ

നദ്ദ അറിയിച്ചു

സൌരഭ് ചൌധരിക്ക് വെങ്കലം വർമ്മയും ചൌധരിയും വഴി ഇന്ത്യയുടെ പരമാവധി ഒളിമ്പിക് ശക്തികളെയാണ് ഇന്ത്യ പരീക്ഷിച്ചത് സഞ്ജീവ് രജ്പുട്ട് അൻജും മൌഡ്ഗിൽ അപൂർവി ചന്ദേല സൌരഭ് ചൌധരി അഭിഷേക് വർമ്മ ദിവ്യൻഷ് സിംഗ് പൻവാർ രാഹി സർനോബത്ത് മനുഭാക്കർ തുടങ്ങിയ താരങ്ങളാണ് ഇപ്പോൾ ഇന്ത്യയ്ക്കുവേണ്ടി മൽസരിക്കുന്നത്

പരമ്പ്ര്യിലെ രണ്ടാം ഏകദിനം നാളെ നടക്കും

രാത്രി എട്ടിനാണ് മത്സരം